മുതിർന്ന പൌരന്മാർക്ക് മക്കളുടെ സംരക്ഷണം ഉറപ്പു വരുത്തുന്ന നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരും അഭിമന്യു വധക്കേസിൽ രണ്ടുപേർകൂടി അറസ്റ്റിൽ

ഐ പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു

വിശ്വാസൃത വർദ്ധിപ്പിക്കാൻ മാധൃമങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ ശ്രമമുണ്ടാകണമെന്ന് കേന്ദ്രമന്ത്രി രാജ്യ വർദ്ധൻ സിംഗ് റാത്തോഡ് ലോകകപ്പ് ഫുട്ബോൾ കാർട്ടർ മത്സരത്തിൽ ഇന്ന് ഇംഗ്ലണ്ട് സ്വീഡനെയും റഷ്യ ക്രൊയേഷ്യയെയും നേരി ടും കേരളത്തിലെ നിപ വൈറസ് പ്രതിരോധ പ്രവർത്ത നങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ അമേരി ക്കയിലെ ബാൾട്ടിമോർ ഹ്യുമൺ വൈറോളജി ഇൻസ്റ്റി റ്റ്യൂട്ട് ആദരിച്ചു കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ നിപാ ബാധ നിയന്ത്രിക്കാനും വ്യാപിക്കാതിരിക്കാനും സ്വീകരിച്ച നടപടികളുടെ പേരിലാണ് അദ്ദേഹത്തിന് ആദരം ലഭിച്ചത് മന്ത്രി കെ

ശൈലജയും ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിന് ആരോഗ്യമേഖലയിൽ രാജ്യാ ന്തരതലത്തിൽ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി യാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അനുമോദനം മുതിർന്ന പൌരന്മാർക്ക് മക്കളുടെ സംരക്ഷണം ഉറ പ്പുവരുത്തുന്ന് നിയമത്തിൽ വരുത്താനുദ്ദേശിക്കുന്ന ഭേദ ഗതി നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെ കൂടി യാലോചനയ്ക്ക് വിട്ടു മക്കളുടെ പട്ടികയിൽ മരുമ കനെയും മരുമകളെയും ഉൾപ്പെടുത്തുന്ന നിർദ്ദേശമാണ് ഭേദഗതിയിൽ പ്രധാനപ്പെട്ടത് നിലവിൽ മകൻ മകൾ പേരക്കുട്ടികൾ എന്നിവർക്ക് മാത്രമാണ് മുതിർന്ന പൌര ന്മാരുടെ സംരക്ഷണ ചുമതല മാതാപിതാക്കൾക്ക് സംരക്ഷണം നൽകാത്തവർക്ക് ലഭിക്കുന്ന ജയിൽശിക്ഷ മൂന്നുമാസത്തിൽനിന്ന് ആറു മാസമാക്കി വർദ്ധിപ്പിക്കാനും ഭേദഗതിയിൽ വ്യവസ്ഥ യുണ്ട് മഹാരാജാസ് കോളേജിലെ എസ്

പ്രതികളെ സഹായിച്ച എസ്

ഐ പ്രവർത്തകരായ നവാസ് ജെഫ്രി എന്നിവരാണ് അറസ്റ്റിലായത് ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം ആറായി അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത നേതാക്കളെ വിട്ടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പൊലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയ എസ്

ട്രെയിൻ മാർഗ്ഗം സംസ്ഥാനത്തേക്കെത്തുന്ന മത്സ്യ ങ്ങൾ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് പരിശോധിച്ചു ഫോർമാലിൻ ഉൾപ്പെടെ രാസവസ്തുക്കൾ ഇല്ലെന്ന് ഉറപ്പാക്കുന്നതിനാണ് പരിശോ ധന നടത്തിയത് ട്രെയിനുകളിൽ നിന്ന് ശേഖരിച്ച മത്സ്യ സാമ്പിളുകൾ പരിശോധനക്ക് അയക്കുമെന്ന് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അറിയിച്ചു കോട്ടയത്ത് വീട്ടമ്മയെ വൈദികർ പീഡിപ്പിച്ചെന്ന ആരോപണത്തിൽ ദേശീയ വനിതാ കമ്മീഷന്റെ മൊഴി യെടുപ്പ് തുടങ്ങി കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ തിരുവല്ലയിൽ നേരിട്ടെത്തിയാണ് വീട്ടമ്മയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നത് അഞ്ച് ഓർത്തഡോക്സ് സഭാ വൈദികർ കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തു മെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടമ്മയെ പീഡിപ്പിക്കുകയാ യിരുന്നുവെന്നാണ് പരാതി

പിയുമായ ഡോ

കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ്സിംഗ് ഗുരുവായൂരിൽ ദർശനം നടത്തി പുലർച്ചെ മൂന്നരയോടെ ക്ഷേത്രത്തി ലെത്തിയ അദ്ദേഹം അരമണിക്കൂറോളം ദർശനത്തിനായി ചെലവഴിച്ചു തുടർന്ന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ ബി

പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എം രാധാ കൃഷ്ണൻ ഉൾപ്പെടെ നേതാക്കളുമായി അദ്ദേഹം കൂടി ക്കാഴ്ച നടത്തി വാർത്തകൾ സ്വതന്ത്രവും സത്യസന്ധമായും ജനങ്ങ ളിലേക്കെത്തിക്കുന്നതിൽ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ മികവ് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് പറഞ്ഞു സ്വന്തം പ്രവർത്തനരീതിയിൽ നിന്നുതന്നെ മാധ്യമങ്ങളുടെ വിശ്വാ സൃത ചോദ്യം ചെയ്യപ്പെടുന്ന തലത്തിലേക്ക് എത്തിയി രിക്കുകയാണ് ഇത്തരം നടപ്പടികൾ ആശ്വാസ്യകരമല്ലെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു

ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് കാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ എച്ച് എസ് പ്രണോയും പി വി സിന്ധുവും പുറത്തായി ലോക മൂന്നാം നമ്പർ താരമായ സിന്ധു ബിങ്ജിയോയോടാണ് പരാജയപ്പെട്ട ത് ക്രിക്കറ്റ് ഉൾപ്പെടെ കായിക ഇനങ്ങളിൽ വാതുവെപ്പും ചൂതാട്ടവും നിരോധിക്കണമെന്നാണ് ഗവൺമെന്റിനോട് ശുപാർശ ചെയ്തതെന്ന് ദേശീയ നിയമ കമ്മീഷൻ വിശ ദീകരിച്ചു തന്റെ റിപ്പോർട്ടിലെ ഉള്ളടക്കത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നെന്ന് കമ്മീഷൻ ജസ്റ്റിസ് ബി എസ് ചൌഹാൻ ഡൽഹിയിൽ പ്റഞ്ഞു വാതുവെപ്പിനും ചൂതാട്ടത്തിനും നികുതി ഏർപ്പെടുത്തണമെന്ന തരത്തിൽ വാർത്ത വന്ന സാഹചര്യത്തിലാണ് കമ്മീഷന്റെ വിശദീ കരണം ഒക്ടോബറിൽ തുർക്കിയിൽ നടക്കുന്ന ലോക പഞ്ച ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ദേശീയതാരം മജ്സിയ ഭാനുവിന് എം

മാഹി ഡെന്റൽ കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥിയായ മജ്സിയ കോഴിക്കോട് ഓർക്കാട്ടേരി സ്വദേശിയാണ് കാലവർഷത്തിൽ തകർന്ന വയനാട് ചുരത്തിലൂടെ യാത്രാവാഹനങ്ങൾ ഓടിത്തുടങ്ങി മഴ കുറഞ്ഞതിനെ ത്തുടർന്നാണ് ടൂറിസ്റ്റ് ബസ്സുകളടക്കം വാഹനങ്ങൾക്ക് അനുമതി നൽകാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത് എന്നാൽ ചരക്കുവാഹനങ്ങൾ ചുരം റോഡിലൂടെ കട ത്തിവിടില്ല അത്തരം വാഹനങ്ങൾ കുറ്റ്യാടി വഴി തുടർന്നും പോകേണ്ടതാണ് ഉരുൾപൊട്ടലിൽ തകർന്ന ഇരിട്ടി മാക്കൂട്ടം ചുരം റോഡിലും ചെറുവാഹനങ്ങൾ ഇന്നുമുതൽ ഓടിത്തുട ങ്ങി ഒരു മാസത്തോളമായി ചുരം റോഡ് അടച്ചിട്ട് അറ്റ കുറ്റപ്പണികൾ പൂർത്തിയാക്കുകയാണ് വലിയ വാഹന ങ്ങൾ അറ്റകുറ്റപ്പണി അവസാനിപ്പിച്ച ശേഷമേ ചുരം റോഡ് വഴി കടത്തിവിടൂ എന്ന് അധികൃതർ അറിയിച്ചു ദേശീയതലത്തിൽ മികച്ച ക്ഷീരോല്പാദക സംസ്ഥാ നത്തിനുള്ള ഇന്ത്യാ ടുഡേ ഗ്രൂപ്പിന്റെ പുരസ്കാരം സ്വീക രിച്ചതിനുശേഷം ആദ്യമായി കണ്ണൂരിൽ എത്തിയ മന്ത്രി കെ രാജുവിന് ക്ഷീര കർഷകർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി കേന്ദ്രമന്ത്രി രാധാ മോഹൻസിം ഗിൽനിന്ന് കേരളത്തിനുവേണ്ടി മന്ത്രി കഴിഞ്ഞമാസം അവാർഡ് സ്വീകരിച്ചിരുന്നു ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ഒന്നാം ക്ലാസ്സുകാരനെ അധ്യാ പിക മർദ്ദിച്ച കേസിൽ പ്രധാന അധ്യാപകനെയും സസ്പെൻഡ് ചെയ്തു സംഭവം മേലധികാരികളെ അറി യിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് ഡി ഡി ഇ അദ്ദേ ഹത്തെ സസ്പെൻഡ് ചെയ്തത് വിദ്യാർഥിയെ മർദ്ദിച്ച അധ്യാപികയെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് മൂന്നാംഘട്ട സാങ്കേതിക പരിശീലന ക്ലാസ് കാസർകോട്ട് ഇന്നാരംഭിക്കും കാഞ്ഞങ്ങാട് ചെർക്കള ഉപ്പള തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിലാണ് ക്ലാസ്സു കൾ സംഘടിപ്പിക്കുന്നത്

പ്രി കരിപ്പൂർ വിമാനത്താവളം സംരക്ഷിക്കണമെന്നാവശ്യ പ്പെട്ട് കേരള പ്രവാസി സംഘം നേതൃ ത്വത്തിൽ ചൊവ്വാഴ്ച എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തും

പി വീരേന്ദ്രകുമാർ എം പി ഉദ്ഘാ ടനം ചെയ്യും

സി മമ്മുട്ടി സ്മാരക എൻഡോവ്മെന്റിന് പറമ്പിൽ ബസാർ പ്രഭാതം വായനശാലയെ തെരഞ്ഞെടുത്തു

എൻ കുറുപ്പ് വായനശാ ലയ്ക്ക് സമർപ്പിക്കും

ഉച്ചയ്ക്ക് മന്ത്രി ടി

രാമകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും പുനലൂർ പാലക്കാട് പുനലൂർ പാലരുവി എക്സ്പ്രസ് തിങ്കളാഴ്ച മുതൽ തിരുനെൽവേല്പി വരെ നീട്ടും

കൊല്ലം ഇടമൺ പാസഞ്ചർ ചെങ്കോട്ട വരെ നീട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന അറിയിപ്പ് ലഭിച്ചതായി എൻ കെ പ്രേമചന്ദ്രൻ എം പി അറിയിച്ചു

ആറുമാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിലാണ് സ്റ്റോപ്പ് അനുവദിച്ചത്

റേഷൻകട ഉൾപ്പെടെ കടകളാണ് ഇന്ന് പുലർച്ചെ തകർന്നത്

ദേശീയ ദുരന്ത നിവാരണ പദ്ധതി പ്രകാരം രൂപീകരിച്ച യുവ കർമ്മസേനാ അംഗങ്ങൾക്ക് കണ്ണൂരിൽ പരിശീലനം ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ കുലക്ടർ മീർ മുഹമ്മദലി ഉദ്ഘാടനം ചെയ്തു